ത നോർക്ക നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു ത സംസ്ഥാന ഗവൺമെന്റിന്റെ സൌജന്യ പലവ്യഞ്ജന കിറ്റ് വിതരണം രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിക്കും

വാർത്തകൾ വിശദമായി കോവിഡിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടവും തുടർ നടപടികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി രാവിലെ വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച ചെയ്യും കഴിഞ്ഞമാസത്തെ ലോക്ക്ഡൌൺ പ്രഖ്യാപനത്തിന് ശേഷം മൂന്നാംതവണയാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തുന്നത് മുഖ്യമന്ത്രിമാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതും പിന്നീട് മെയ് മൂന്ന് വരെ അത് നീട്ടിയത് കാലാവധി തീരാൻ ഒരാഴ്ചയിൽ താഴെ മാത്രം ശേഷിക്കുമ്പോൾ ഇന്ന് നടത്തുന്ന ചർച്ച നിർണ്ണായകമാണ് തെലങ്കാന ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങൾ ലോക്ക്ഡൌൺ നീട്ടണമെന്ന നിർദേശം ഉന്നയിച്ചു കഴിഞ്ഞു സംസ്ഥാനങ്ങളിലെ കോവിഡ് വ്യാപനവും പൊതുവായ സാഹചര്യങ്ങളും വിലയിരുത്തിയായിരിക്കും ലോക്ക്ഡൌണിന്റെ തുടർനടപടികൾ പ്രധാനമന്ത്രി തീരുമാനിക്കുന്നത് രേര സംസ്ഥാനത്ത് ഇന്നലെ ഇടുക്കി ജില്ലയിൽ ആറു പേർക്കും കോട്ടയം ജില്ലയിൽ അഞ്ചു പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്

കാസർകോട് കണ്ണൂർ മലപ്പുറം തിരുവനന്തപുരം ജില്ലകളിൽ ഓരോരുത്തർക്കാണ് രോഗം മാറിയത്

കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ശാസ്താംകോട്ട കോട്ടയം ജില്ലയിലെ മണർകാട് എന്നിവയെ പുതിയ ഹോട്ട്സ്പോട്ടുകളാക്കി

ഏലപ്പാറ വണ്ടൻമേട് ഇരട്ടയാർ വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളിലാണ് മെയ് മൂന്ന് വരെ സമ്പൂർണ്ണ ലോക്ഡൌൺ

രുമ ഇന്നലെ അഞ്ചുപേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച കോട്ടയം ജില്ലയിൽനിന്ന് വിശദാംശങ്ങളുമായി ഞങ്ങളുടെ കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു

രോഗബാധ സ്ഥിരീകരിച്ചവരെല്ലാം തന്നെ രോഗവിമുക്തരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജാഗ്രതയോടെ തുടരുന്നു

പാലക്കാട് ജില്ലാ ആശുപത്രിയിൽആറു പേരാണ് കോവിഡ് ബാധിച്ചു ചികിത്സയിൽ കഴിയുന്നത്

മലപ്പുറം ജില്ലയിൽ കോവിഡ് രോഗവിമുക്തരായ അഞ്ച് പേർ കൂടി ഇന്ന് രാവിലെ വീടുകളിലേയ്ക്കു മടങ്ങും ഇതിൽ രണ്ട് പേർ സ്ത്രീകളാണ് ഇനി ഒരാൾ മാത്രമാണ് രോഗ ബാധിതനായി ജില്ലയിൽ ചികിത്സയിൽ തുടരുന്നത് രുഭ റെഡ് സോണിൽ തുടരുന്ന കാസർഗോഡ് ജില്ലയിൽ ഇന്നലെ പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല

ബുറൈദായിൽ ഡ്രൈവറായി ജോലി ചെയ്ത് വരികയായിരുന്നു ദേദ കോയമ്പത്തൂർ മേഖലയിൽ കോവിഡ് രോഗബാധിതർ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നിരീക്ഷണം ശക്തമാക്കി

മുഖ്യമന്ത്രിയുടെ നിർദേശ പ്രകാരം പ്രത്യേക നടപടിയുടെ ഭാഗമായാണ് സാമ്പിൾ ശേഖരണം രേര കണ്ണൂർ ജില്ലയിലെ ഹോട്ട് സ്പോട്ട് ഒഴികെ പ്രദേശങ്ങളിൽ സിമന്റും ഇലക്ട്രോണിക് സാധനങ്ങളും വിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഹോംഡെലിവെറി അനുവദിച്ച് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു

രുമ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവരുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ നോർക്ക ആരംഭിച്ചു ക്വാറന്റൈൻ അടക്കം നടപടികൾ സജ്ജമാക്കുന്നതിനാണ് രജിസ്ട്രേഷൻ നടത്തുന്നത് ഇതുവഴി ടിക്കറ്റ് ബുക്കിങ് ഉൾപ്പെടെ കാര്യങ്ങൾക്ക് മുൻഗണന ലഭിക്കില്ലെന്ന് നോർക്ക വ്യക്തമാക്കി

രുഭ അടുത്ത വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ഇടിയോടുകൂടിയ മഴയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്രകാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

കേരളതീരത്തും ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിലും ഇന്ന് മീൻപിടിക്കാൻ പോകരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രം നിർദേശിച്ചു

രുമ കോഴിക്കോട് മേപ്പയ്യൂർ വി

എം യു പി സ്കൂളിൽ വിദ്യാർഥികൾക്കും നാട്ടുകാർക്കുമായി സംഘടിപ്പിച്ച ഓൺലൈൻ കലോത്സവം സംവിധായകൻ മനു അശോക് ഉദ്ഘാടനം ചെയ്തു ബ്രേക്ക് ദ ടെൻഷൻ എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ കെ മുരളീധരൻ എം പി മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വിദ്യാർഥികളുമായി സംവദിച്ചു